നാളെ ഗുരുവായൂരിൽ ബിജെപി പൊതുയോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും

കേന്ദ്രസഹമന്ത്രി വി

കോഴിക്കോട്ട് നാളെ സ്വീകരണം നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിതി ആയോഗ് പുനസംഘടിപ്പിച്ചു എട്ട് മന്ത്രിസഭാ സമിതികളും രൂപീകരിച്ചു സംസ്ഥാന പൊലീസിൽ അഴിച്ചുപണി

ൾ ൽ ൾ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി കൊച്ചിയിൽ എത്തും

ദർശനത്തിന് ശേഷം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളജിൽ സംഘടിപ്പിക്കുന്ന ബിജെപിയുടെ പൊതു യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും

പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീ കരണങ്ങൾ ശക്തമാക്കി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരെ നന്ദി അറിയി ക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തി ലെത്തും ഉച്ചക്ക് ഒന്നരയോടെ പ്രത്യേക വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി കാളികാവ് നിലമ്പൂർ എടവണ്ണ അരീക്കോട് എന്നിവിടങ്ങളിൽ പ്ര്യടനം നടത്തും തുടർന്ന് റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് പോകും ഇന്ന് കൽപ്പറ്റ റസ്റ്റ് ഹൌസിൽ തങ്ങുന്ന രാഹുൽ ഗാന്ധി നാളെയും മറ്റന്നാളും വയനാട്ടിലും കോഴിക്കോട്ടും പൊതു പരിപാടി കളിൽ പങ്കെടുക്കും തുടർന്ന് കരിപ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും

മുരളീ ധരൻ ഇന്ന് തിരുവനന്തപുരത്തെത്തും വിമാനത്താവളത്തിൽ ബിജെപി പ്രവർത്തകർ അദ്ദേഹത്തിന് സ്വീകരണം നൽകും നാളെ വൈകീട്ട് കോഴിക്കോട്ടെത്തുന്ന വി മുരളീധരന് റെയിൽവേ സ്റ്റേഷനിൽ ബിജെപി പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്

പാർട്ടി സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ സംസാരിക്കും കേന്ദ്ര മന്ത്രി വി മുരളീധരനെതിരായ വധ ഭീഷണി സംബന്ധിച്ച കേസ് സംസ്ഥാന ഗവൺമെന്റ് എൻഐഎക്ക് കൈമാറണമെന്ന് ബിജെപി കോഴിക്കോട് ജില്ലാ നേതൃയോഗം ആവശ്യപ്പെട്ടു കേന്ദ്രമ ന്ത്രിക്കെതിരായ വധഭീഷണി സന്ദേശം അധികൃതർ നിസ്സാരമായി കാണരുതെന്ന് യോഗം ആവശ്യപ്പെട്ടു

ആരെയും അറസ്റ്റുചെയ്തിട്ടില്ല കേന്ദ്രമന്ത്രി അമിത്ഷായെ ഔദ്യോഗിക അംഗമാക്കി നിതി ആയോഗ് പുനസംഘടിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനു മതി നൽകി വിവേക് ഒബ്റോയിയെ ഒഴിവാക്കിയും മറ്റെല്ലാ അംഗ ങ്ങളേയും നിലനിർത്തിയുമാണ് നിതി ആയോഗിന്റെ പുനസംഘട ന രാജീവ് കുമാർ വൈസ് ചെയർമാനായി തുടരും

സാര സ്വത് രമേശ് ചന്ദ് വി

പോൾ എന്നിവരാണ് മറ്റ് മുഴുവൻ സമയ അംഗങ്ങൾ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിങ്ങ് നിർമ്മല സ്രീതാരാമൻ നരേ ന്ദ്രസിങ്ങ് തോമർ തുടങ്ങിയവരും നിതി ആയോഗിലെ ഔദ്യോഗിക അംഗങ്ങളാണ് നിതിൻ ഗഡ്ഗരി താവർ ചന്ദ് ഗ്ലോട്ട് പീയുഷ് ഗോയൽ റാവു ഇന്ദ്രജിത് സിങ്ങ് തുടങ്ങിയവർ നിതി ആയോഗിലെ പ്രത്യേക ക്ഷണിതാക്കളായിരിക്കും

എല്ലാ സമിതികളിലും ആഭ്യന്തര മന്ത്രി അമിത് ഷാ അംഗമാണ്

ഇതൊഴികെ മറ്റെല്ലാ ്സമിതികളുടേയും തലവൻ പ്രധാ നമന്ത്രിയാണ് പനിയെ തുടർന്ന് കൊച്ചിയിൽ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന ഏഴാമത്തെയാൾക്കും നിപയില്ലെന്ന് സ്ഥിരീ കരിച്ചു

എല്ലാവരുടേയും പരിശോധനാ ഫലം പുനെ വൈറോളജി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചു ഇപ്പോൾ കൊച്ചിയിൽ സ്ഥകാര്യ ആശുപത്രിയിൽ കഴി യുന്ന വിദ്യാർത്ഥിക്കു മാത്രമാണ് നിപ സ്ഥിരീകരിച്ചത് ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മന്ത്രി കെ

ശൈലജ അറിയി മ്പും കൊല്ലം ജില്ലയിലെ ഇതര സംസ്ഥാന തൊഴിലാളി കൃാമ്പുകളിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സന്ദർശനം നടത്താൻ ആരോഗൃ വകുപ്പ് തീരുമാനിച്ചു പകർച്ച രോഗങ്ങളുടെ നിയന്ത്രണം ലക്ഷ്യമിട്ടാണ് നടപടി എല്ലാത്തരം പനി ബാധിതർക്കും മതിയായ ചികിത്സ ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു

തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ ഘടകങ്ങൾ അന്തരീക്ഷത്തിൽ രൂപ പ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ നാളെ കാലവർഷം കേരളത്തിലെത്തു മെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലി ക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് ശക്തമായ മഴ സാധ്യത മുൻനിർത്തി ഇന്ന് കോഴിക്കോട് ജില്ലയിലും നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിലെ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്

താലൂക്ക് തലത്തിൽ കൺട്രോൾ റൂമുകൾ തുറക്കാനും ആവശ്യപ്പെ ട്ടിട്ടുണ്ട് സിപിഐഎം ന്റെ മൂന്ന് ദിവസത്തെ കേന്ദ്രകമ്മറ്റി യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തൂടക്കമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടി യോഗത്തിൽ ചർച്ചയാകും തെരഞ്ഞെ ടുപ്പ് ഫലം സംബന്ധിച്ച വിലയിരുത്തൽ അടങ്ങിയ റിപ്പോർട്ട് കേന്ദ്ര കമ്മറ്റി പരിഗണിക്കും സംസ്ഥാന പൊലീസിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തി തിരു വനന്തപുരത്തും കൊച്ചിയിലും ഐജിമാരുടെ നേതൃത്വത്തിൽ പൊലീസ് കമ്മീഷണറേറ്റുകൾ രൂപീകരിച്ചു

നില വിൽ ഡിഐജി റാങ്കിലെ ഉദ്യോഗസ്ഥരായിരുന്നു രണ്ടിടത്തും സിറ്റി പൊലീസ് കമ്മീഷണർമാർ കമ്മീഷണർമാർക്ക് മജിസ്റ്റീരിയൽ പദ വിയും ഉണ്ടായിരിക്കും ക്രമസമാധാന ചുമതല പൂർണമായും എഡിജിപി ഷെയ്ക് ദർബേഷ് സാഹിബിന് നൽകി എക്സൈസ് കമ്മീഷണർ ആയി രുന്ന ഋഷിരാജ് സിങ്ങിനെ ജയിൽ മേധാവിയായി നിയമിച്ചു പൊലീസ് ആ സ്ഥാ നത്തെ എഡി ജി പി യാ യി രു ന്ന അനന്തൃഷ്ണനാണ് പുതിയ എക്സൈസ് കമ്മീഷണർ ജയിൽ മേധാ വിയായിരുന്ന ആർ

സന്ധ്യയാണ് പൊലീസ് അക്കാഡമിയുടെ എഡിജിപി ഏതാനും എസ്പിമാരേയും മാറ്റി നിയമിച്ചിട്ടുണ്ട് ലോകകപ്പ് ക്രിക്കറ്റിൽ ആസ്ട്രേലിയയ്ക്ക് തുടർച്ചയായ രണ്ടാം വിജയം

ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നിന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും കോട്ടയം മെഡിക്കൽ കോളജ്ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായില്ലെന്ന് മെഡിക്കൽ കോളജ് ആശുപത്രി സൂപ്രണ്ട് ആരോഗ്യ വിദ്യാഭ്യാസവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി എച്ച്വൺ എൻവൺ ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിലെത്തിച്ച കട്ടപ്പന സ്വരാജ് സ്വദേശി ജേക്കബ് തോമസിന് ചികിത്സ നിഷേധിച്ച ആക്ഷേപം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി കെ

ശൈലജ നിർദേശം നൽകിയിരുന്നു സംസ്ഥാനത്തിന്റെ വികസനത്തിന് കാര്യമായ ഒരു സംഭാവനയും നൽകാൻ എസ്ബിഐ അടക്കം ബാങ്കുകൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആലപ്പുഴയിൽ കുറ്റപ്പെടുത്തി ആല പ്പുഴ അർബൻ സഹകരണ ബാങ്കിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളാബാങ്ക് നിലവിൽ വരുന്ന തോടെ സഹകരണ ബാങ്കുകൾ ആധുനികവത്ക്കരിക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ അഞ്ച് റെയിൽവെ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് കിഫ്ബിയിൽ നിന്ന് തുക അനു വദിക്കാത്തതിൽ കെപിസിസി വർക്കിങ്ങ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് പ്രതിഷേധം അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റ് അപ്രോച്ച് റോഡിന് റെയിൽവേക്ക് തുക നൽകാത്തത് കൊണ്ടാണ് നിർമ്മാണം ആരംഭിക്കാൻ കഴിയാതെ വന്നതെന്ന് കൊടിക്കുന്നിൽ കുറ്റപ്പെടുത്തി എബിവിപി സംസ്ഥാന പഠനശിബിരത്തിന് ഇന്ന് കണ്ണൂരിൽ തുടക്കമാവും തളാപ്പ് എക്സോറ കൺവെൻഷൻ ഹാളിൽ രാവിലെ എബിവിപി ദേശീയ സംഘടനാ സെക്രട്ടറി സുനിൽ അംബേദ്കർ ഉദ്ഘാടനം ചെയ്യും

ദുബായിൽ ഇന്നലെ വൈകീട്ടുണ്ടായ ബസ്സപകടത്തിൽ ആറ് മല യാളികളടക്കം പതിനേഴ് പേർ മരിച്ചു ദീപക് കുമാർ ജമാലുദ്ദീൻ തിലകൻ വാസുദേവൻ എന്നീ മലയാളികൾ മരിച്ചതായാണ് ആദ്യ റിപ്പോർട്ട് ഗുരുതരമായി പരിക്കേറ്റ അഞ്ചുപേരിൽ രണ്ട് പേർ മലയാ ളികളാണ്

മാതമഗലം ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിലെ മുഹമ്മദ് ഷഹീദ് പെരിങ്ങോം ഗവൺമെന്റ് കോളേജിലെ നിധിൻ മോഹൻ എന്നിവരാണ് മരിച്ചത് മറ്റൊരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു കണ്ണൂർ ഇരിട്ടിയ്ക്കടുത്ത് കുളിയ്ക്കുന്നതിനിടെ പുഴയിൽ മുങ്ങിമരിച്ച രണ്ട് വിദ്യാർത്ഥികളുടെ മൃതദേഹം ഇന്ന് സംസ്ക്കരി ക്കും അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിലെ എമിൻ സബാൻ വള്ളിത്തോട്ടെ ആനന്ദ് റാഫി എന്നിവരാണ് മരിച്ചത് എമിൻ സബാന്റെ മൃതദേഹം വൈകീട്ട് ഉളിയ്ക്കൽ ഉണ്ണിയേശു ദേവാലയ സെമിത്തേരിയിലും ആനന്ദ് റാഫിയുടെ മൃതദേഹം ഉച്ചക്ക് ശേഷം വീട്ടുവളപ്പിലുമാണ് സംസ്ക്കരിക്കുന്നത് ഇന്നലെ അന്തരിച്ച പ്രമുഖ ചരിത്ര പണ്ഡിതനും എഴുത്തുകാര നുമായ പ്രൊഫ

കുറുപ്പിന്റെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ണൂർ മട്ടന്നൂർ നഗരസഭാ വാതക ശ്മശാനത്തിൽ സംസ്ക്കരിക്കും കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനായിരുന്ന പ്രൊഫ

കുറുപ്പ് മട്ടന്നൂർ മഞ്ചേരി ചേർത്തല ഒരുമ്പാറ എൻഎസ്എസ് കോളജുകളിൽ ചരിത്രവിഭാഗം മേധാവിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് റേഡിയോ വിഭാഗം റിട്ട അസിസ്റ്റൻ എക്സി ക്യൂട്ടീവ് എഞ്ചിനിയർ മതിലകത്ത് മഠത്തിൽ എം

ഇന്ത്യക്ക് അകത്തെയും പുറത്തെയും പല പ്രമുഖ വ്യക്തികളുടെയും പ്രസംഗങ്ങൾക്ക് ശബ്ദ ക്രമീകരണമൊരുക്കി പ്രശസ്തി നേടിയിട്ടുണ്ട് സംസ്കാരം രാവിലെ പുതിയപാലം ശ്മശാനത്തിൽ നടക്കും

ഇന്നലെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

തമിഴ്നാട്ടിലെ കമ്പത്തു നിന്നും ഇടുക്കിയിലെ നെടുങ്കണ്ടം വഴി എറണാകുളത്തേക്ക് കാറിൽ കടത്തുകയായിരുന്ന രണ്ടേകാൽ കിലോ കഞ്ചാവ് നാർക്കോട്ടിക്ക് സംഘം പിടികൂടി നെടുങ്കണ്ടം സ്വദേശി വട്ടത്തറയിൽ അഭിലാഷിനെയാണ് നെടുങ്കണ്ടം പച്ചടി ഭാഗത്തു നിന്നും ഇടുക്കി എക്സൈസ് നാർക്കോട്ടിക് സ്കാഡ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റിലും മഴയിലും വയനാട് കാട്ടി ക്കൂളം തോൽപ്പെട്ടിയിൽ മൂന്ന് വീടുകൾ പൂർണമായി തകർന്നു

മഴ എത്തിയതോടെ ആലപ്പുഴയിൽ കടൽക്ഷോഭം രൂക്ഷമായി